എ ജി റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ നിയമസഭയിൽ വെയ്ക്കുന്നതിന് മുമ്പ് പുറ ത്തായെന്ന് സംശയിക്കുന്നതായി ചീഫ് സെക്രട്ടറി ടോം ജോസ് തിരുവനന്ത പുരത്ത് പറഞ്ഞു റിപ്പോർട്ട് സഭയിൽ വെയ്ക്കുന്നതിന് മുമ്പുതന്നെ അതിലെ ചില വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നിരുന്നു റിപ്പോർട്ടിലില്ലാത്ത വൃക്തിപരമായ ചില കുറ്റപ്പെടുത്തലുകളും ആരോപണങ്ങളും മാധ്യമങ്ങ ളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് നിർഭാഗൃകരമാണെന്നും ചീഫ് സെക്രട്ടറി പറഞ്ഞു പൊലീസ് വകുപ്പിലെ വാഹനം ചീഫ് സെക്രട്ടറി ഉപയോഗിക്കു ന്നത് തെറ്റാണെന്ന തരത്തിൽ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് വിവിധ വകു പ്പുകളുടെ മേധാവി എന്ന നിലയിൽ ചീഫ് സെക്രട്ടറിക്ക് ഏതു വകുപ്പിന്റെയും വാഹനം ഉപയോഗിക്കാമെന്നും അദ്ദേഹം വൃക്തമാക്കി

എ ജി റിപ്പോർട്ടിൽ തുടർ പരിശോധന ഉണ്ടാകും ആവശ്യമെങ്കിൽ തിരുത്തൽ നട പടികൾ സ്വീകരിക്കുമെന്നും ചീഫ് സെക്രട്ടറി അറിയിച്ചു

ജി റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന പൊലീസിന്റെ ആയുധങ്ങൾ കാണാതായ വിഷയം ഹൈക്കോടതി നിശ്ചയിക്കുന്ന പ്രത്യേക ജഡ്ജിയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കണമെന്ന് കെ

സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കോഴിക്കോട്ട് ആവശൃപ്പെട്ടു വിഷയത്തെ ലാഘവത്തോടെ കാണാ നാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി നാളെ മുതൽ ശക്തമായ പ്രക്ഷോഭത്തിന് കോൺഗ്രസ് നേതൃത്വം നൽകുമെന്നും മുല്ലപ്പള്ളി അറിയിച്ചു

ജി പി ലോക്നാഥ് ബെഹ്റയെ സ്ഥാനത്ത് നിന്ന് മാറ്റിനിർത്തി അന്വേഷ ണം നടത്തണമെന്ന് കോൺഗ്രസ് നേതാവ് എം എം ഹസ്സൻ ആവശ്യപ്പെട്ടു ബെഹ്റയെ രക്ഷിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമം നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് സതീശൻ പാച്ചേനി നയിക്കുന്ന സഹനസമര പദയാത്രയുടെ കോളയാട് ബ്ലോക്കിലെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രുമെട്ടറു ഗാർഹിക ഉപഭോക്താക്കളിൽ നിന്ന് മൂന്നുമാസത്തേക്ക് യൂണിറ്റിന് പത്തു പൈസ സർചാർജ്ജ് ഈടാക്കാൻ അനുവദിച്ച് സംസ്ഥാന വൈദ്യുതി റഗു ലേറ്ററി കമ്മീഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചു

മാസം ഇരുപത് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ബി

എൽ ഉപഭോക്താ ക്കൾക്ക് സർചാർജ്ജ് ബാധകമല്ല കഴിഞ്ഞ ഏപ്രിൽ മുതൽ കെ എസ് ഇ

കെ ശശീന്ദ്രൻ അറിയിച്ചു

അതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന വ്യാപകമായി പദ്ധതി നടപ്പാക്കുന്നത് കണ്ണൂർ കാഞ്ഞിരങ്ങാട് ആധുനിക ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

ടി ഓഫീസുകൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി എ കെ ശശീ ന്ദ്രൻ പറഞ്ഞു കാസർകോട് ബേളയിൽ കമ്പ്യൂട്ടറൈസ്ഡ് ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രവും വാഹന പരിശോധനാ കേന്ദ്രവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

കളമശേരി മെഡിക്കൽ കോളജ് ഐസൊലേഷൻ വാർഡിൽ ഒരാൾ മാത്രമാണ് കഴിയുന്നത് കോവിഡ് പ്രതിരോധ ബോധവ ത്കരണ ക്ലാസുകൾ ജില്ലയിൽ തുടരുന്നുണ്ട്

ആശുപത്രിക ളിൽ മൂന്നുപേർ കരുതൽ കാലാവധിയിൽ കഴിയുന്നുണ്ട്

നിലവിൽ ആശുപ ത്രിയിൽ ആരും കഴിയുന്നില്ല

രണ്ടുപേർ ആശുപത്രിയിലാണ്

കൊച്ചി സർവകലാശാലയിൽ വിദ്യാർത്ഥിക ളുടെ ഉച്ചകോടി ഇൻഫോ പാർക്കിൽ സൈബർ ക്രൈം പൊലീസ് സ്റ്റേഷൻ എന്നിവ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും കൃതി പുസ്തകോത്സവത്തിൽ ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികൾ എന്ന സംവാദം ഉദ്ഘാടം ന ചെയ്തശേഷം അങ്കമാലിയിൽ മുനിസിപ്പാലിറ്റി നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയവും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും

ദേശീയ ചുഴലിക്കാറ്റ് അപ കട സാധൃത ലഘൂകരണ പദ്ധതിയുടെ ഭാഗമായാണ് കേന്ദ്രങ്ങൾ നിർമ്മി ക്കുന്നത് കണ്ണൂർ ജില്ലയിൽ രണ്ട് കേന്ദ്രങ്ങൾ സ്ഥാപിക്കും

എസ് എൽ ആറാം സീസണിലെ അവസാന ഹോം മത്സരത്തിൽ ഇന്ന് കേരളാ ബ്ലാസ്റ്റേഴ്സ് ബംഗളുരു എഫ് സി യുമായി ഏറ്റുമുട്ടും

ദർവ്വെട്ടറ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി സംസ്ഥാന ത്തെ സ്കൂളുകളിൽ ഒരു ലക്ഷം ക്ലാസ് ലൈബ്രറികൾ സജ്ജമാക്കാൻ ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതായി മന്ത്രി സി രവീന്ദ്രനാഥ് പറഞ്ഞു കൊല്ലം പള്ളിമൺ ഗവൺമെന്റ് ഹയർ സെക്കന്ററി സ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ് ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ദർവ്വെട്ടറ എല്ലാ സ്കൂളുകളും ഹൈടെക് ആകുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാന മായി കേരളം മാറുമെന്ന് കൊല്ലത്ത് മറ്റൊരു ചടങ്ങിൽ മന്ത്രി അറിയിച്ചു കുന്നത്തൂർ നിയോജക മണ്ഡലത്തിലെ സ്കൂളുകൾ ഹൈടെക് ആയി പ്രഖ്യാപിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി

എസ് സുനിൽകുമാർ ഇന്ന് ഉദ്ഘാടനം ചെയ്യും ജീവനി പദ്ധതി പ്രകാര മാണ് പച്ചക്കറിത്തോട്ടം തയ്യാറാക്കുന്നത് രുട്ട്ട്ട്ട്ട്ട്ട കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം നേതാവ് അനൂപ് ജേക്കബ് വിളിച്ച ഉന്നതാധികാര സമിതി യോഗം ഇന്ന് കോട്ടയത്ത് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നടക്കും

എന്നാൽ ചെയർമാന്റെ അറിവോടെയാണ് യോഗമെന്ന് അനൂപ് ജേക്കബ് പറഞ്ഞു

ടി

വനമേ ഖലയിൽ ചാലക്കയത്തിന് സമീപം ഒറ്റക്കല്ല് ഭാഗത്താണ് ലോ ഫ്ളോർ ബസിന് തീപിടിച്ചത്

രുടെട്ട്ടെടു പ്രകൃതിക്ഷോഭങ്ങളിലെ ദുരന്തത്തിന്റെ ആഘാതം കുറയ്ക്കാനും ദുരന്ത നിവാരണ ആസൂത്രണ രേഖ തയ്യാറാക്കാനും ഇടുക്കി ഇരട്ടയാറിൽ തൃശൂർ കിലയുടെ നേതൃത്വത്തിൽ ഏകദിന പരിശീലനം സംഘടിപ്പിച്ചു തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതികളുമായി യോജിപ്പിച്ച് ദുരന്ത നിവാരണ പ്രവർത്ത നങ്ങൾ ശക്തമാക്കാനാണ് പരിശീലനം സംഘടിപ്പിച്ചത്

ഇന്നലെ ആലപ്പുഴയിലും കോട്ട യത്തും ശരാശരിയിലും ദ ഡിഗ്രി ചൂട് കൂടിയിരുന്നു

ഡ്രൈവർ അയ്മനം പുത്തൻകോട് സ്വദേശി മോനി സഹായി ആർപ്പൂ ക്കര സ്വദേശി മണികണ്ഠൻ എന്നിവരാണ് മരിച്ചത് രദേഷ്ടെടു ട തൃശൂർ കേരളവർമ കോളജിലെ ഫിലോസഫി വകുപ്പ് മുൻ മേധാവി ഹരിപ്പാട് അനന്തപുരം കൊട്ടാരത്തിൽ രാജരാജവർമ നിര്യാതനായി

സംസ്കാരം വൈകീട്ട് പാറമേക്കാവ് ശ്മശാനത്തിൽ നടത്തും

ജെ വർഗീസ് ഉദ്ഘാടനം ചെയ്യും ഫെഡ റേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ അന്ധക്ഷേമ പക്ഷാചരണ സമാപ നവും ജില്ലാതല കലാ കായിക മേളയും രാവിലെ എൻ എം ആർ ഹാളിൽ ആരംഭിക്കും രുട്ട്ട്ട്ട്ട്ട്ട്ട്ട സംസ്ഥാന ഉപഭോക്തൃ സംഗമം ഉച്ചകഴിഞ്ഞ് കോഴിക്കോട് ഗാന്ധിഗൃ ഹത്തിൽ ഹൈക്കോടതി മുൻ ജഡ്ജി ബി കെമാൽപാഷ ഉദ്ഘാടനം ചെയ്യും